ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ കുത്തിവെയ്പ്പ് പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് തുടക്കമിട്ടു ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവെയ്പ്പ് പരിപാടിക്കാണ് തുടക്കമായതെന്ന് പ്രധാനമന്ത്രി

ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ

ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കം

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഹൈദ്രാബാദിനെ നേരിടും

ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യൻ നിർമിതങ്ങളായ രണ്ട് വാക്സിനുകൾ പുറത്തിറക്കാനായതിൽ പ്രധാനമന്ത്രി അഭിമാനം രേഖപ്പെടുത്തി വിദേശ നിർമ്മിത വാക്സിനുകളുടെ അത്രതന്നെ ഗുണനിലവാരമുള്ള വാക്സിൻ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ആദൃ ഡോസ് സ്വീകരിച്ച ശേഷം മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുതെന്ന് പ്രധാനമന്ത്രി ജനങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കോവിഡിനെതിരായ പോരാട്ടം രാജൃത്തിന്റെ ആത്മവിശ്വാസവും സ്വയംപര്യാപ്തതയും ഉയർത്തിയതായും പ്രധാനമന്ത്രി വൃക്തമാക്കി ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞത്തിനാണ് ഇന്ത്യയിൽ ഇന്ന് തുടക്കമായത്

ആരോഗ്യ പ്രവർത്തകർക്കുറിച്ചു മുൻനിര കോവിഡ് പോരാളികൾക്കുമാണ് ഈ ഘട്ടത്തിൽ പ്പൊക്സിൻ നൽകുന്നത്

വിപുലമായ സംവിധാനങ്ങളാണ് വാക്സിനേഷനായി സംസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ളത്

ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാർട്ടപ്പുകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വാണിജ്യവ്യവസായ മന്ത്രാലയത്തിനു കീഴിലുള്ള വ്യവസായ പ്ലൂപ്രോത്സാഹന വകുപ്പാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്

ശ്യാമപ്രസാദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ പങ്കെടുക്കും

തിയേറ്ററിലും വെർചലായും ഇത്തവണ ചലച്ചിത്രങ്ങൾ ആസ്വദിക്കാം

ഉടൻ തന്നെ സമവായത്തിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രകൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ചർച്ചകൾക്കു ശേഷം വാർത്താ ലേഖകരോട് പറഞ്ഞു

എട്ട് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും

ഏപ്രിൽ എട്ടുവരെയാണ് സമ്മേളനം ഇക്കുറി അഞ്ച് മണിക്കൂർ സഭ സമ്മേളിക്കും

മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും

ഭിന്നശേഷിയുള്ളവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ തൊഴിൽ ലഭൃമാക്കാൻ വിജ്ഞാപനം വഴിയൊരുക്കും

ഉദ്യോഗസ്ഥർ ഈ ചുമതല വഹിക്കുന്ന കാലയളവിലും അവരുടെ ചുമതലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു വർഷത്തിനുള്ളിലും സ്വീകരിക്കുന്ന നടപടികൾക്കാണ് നിർദ്ദേശം ബാധകമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ചിലയിടങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം

രെഹാനെയും പൂജാരയുമാണ് ക്രീസിൽ

ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇൌസ്റ്റ് ബംഗാൾ സമനിലയിൽ തളച്ചു